തടയുന്നതിനായി രാജ്യ വ്യാപകമായി പ്രഖ്യാപിച്ചു

ഡി

ശതമാനമാക്കി ഉയർത്തി ഉപ്പാധിയില്ലാതെ മൂന്നര ശതമാനം വരെ കടമെടുക്കാം

എല്ലാ ജില്ലകളിലും പകർച്ചവ്യാധി ചികിത്സാ ബ്ലോക്കുകൾ

സംസ്ഥാനങ്ങളിൽ നിന്നു വന്നവർ ആർക്കും രോഗമുക്തിയില്ല

ഇത് സംബന്ധിച്ച് ഉത്തരവ് ദേശീയ ദുരന്തൂ നിവാരണ അതോറിറ്റി പുറത്തിറക്കി ഇത് സംബന്ധിച്ച മാർഗ്ഗ് നിർദ്ദേശങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പുറത്തുവിട്ടു

സിനിമാശാലകൾ

ചുമപ്പ് ഓറഞ്ച് പച്ച ് സോണുകൾ സംബന്ധിച്ചും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തീരുമാനമെടുക്കാം രാത്രി എഴ് മണി മുതൽ രാവിലെ ഏഴ് മണിവരെ അത്യാവശ്യഘട്ടങ്ങൾ ഒഴികെയുള്ള സഞ്ചാരം അനുവദിക്കില്ല ചരക്ക് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കാൻ പാടില്ല

ഹോട്ടലുകളും റസ്റ്റോറന്റുകളും തുറന്ന് പ്രവർത്തിക്കില്ല എന്നാൽ ഹോം ഡെലിവറി അനുവദിക്കും എല്ലാ ആരാധനാലയങ്ങളും അടച്ചിടും

ഈ മാസം മൂന്നിന് ആരംഭിച്ച മൂന്നാംഘട്ട ലോക്ഡൌൺ ഇന്ന് അർദ്ധരാത്രിയാണ് അവവസാനിക്കാനിരിക്കെയാണ് ദീർഘിപ്പിച്ചത്

ഇത് പിന്നീട് രണ്ടുതവണ കൂടി ദീർഘിപ്പിക്കുകയായിരുന്നു

ആത്മ നിർഭർ ഭാരത് പാക്കേജിന്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ പ്രഖ്യാപനങ്ങളിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര തീരുമാനം വ്യക്തമാക്കിയത്

വോയിസ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിശ്യാ മൂന്ന് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി ഉയർത്തിയത്താണ് ഇന്നത്തെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഒരു രാജ്വർ ഒരു റേഷൻ കാർഡ് നടപ്പാക്കൽ രാജ്യത്ത് വിവിധ സംര്ക്ട്രങ്ങൾ എളുപ്പത്തിൽ നടപ്പാക്കൽ കാര്യക്ഷമമായ വൈദ്യുതിക് വിതരണം നഗര തദ്ദേശ ഭരണ കേന്ദ്രങ്ങളുടെ വരുമാനും എന്നീ മേഖലകളിൽ കൂടുതൽ തുക ചെലവാക്കിയെന്ന് ഉറപ്പുവരുത്താനാണ് കടമെടുപ്പ് പദ്ധതി ഉയർത്തിയത്

മേഖലകളുടെ ത്വരിത വികസനം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ഇന്ന് പ്രഖ്യാപിച്ചത്

ഇവർക്കെതിരെ ഇൻസോൾവെൻസി നടപടികൾ ഉണ്ടാവില്ലെന്നും ഒരു വർഷത്തേയ്ക്ക് ആനുകൂല്യം ലഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു

വിദ്യാ പ്രകാരമുള്ള പദ്ധതികൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൌകര്യം എന്നിവ നടപ്പാക്കും ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നടപ്പാക്കുമെന്നും ശ്രീമതി

തൊഴിലുറപ്പ് പദ്ധതിക്ക് നാൽപ്പതിനായിരം കോടി രൂപ അധികമായി ലഭ്യമാക്കും ബജറ്റിൽ നീക്കിവച്ച അറുപതിനായിരം കോടി രൂപയ്ക്ക് പുറമെയാണിത് ആരോഗൃമേഖലയിൽ കൂടുതൽ തുക വകയിരുത്തും രാജ്യത്തെ എല്ലാ ജില്ലകളിലും പകർച്ച വ്യാധി പരിചരണത്തിനായി പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജമാക്കും

വായ്പാ പരിധി ഉയർത്തിയതിന്റെ ഫലമായി സംസ്ഥാനങ്ങളിൽ ഭരണ സ്തംഭനം ഒഴിവാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു

വിജയരാഘവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ദുബായ് അബുദാബി ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും നാല് വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിൽ എത്തും

ഇതു കൂടാതെ കരിപ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കും പ്രവാസികളുമായി ഓരോ വിമാനങ്ങൾ ഇന്ന് എത്തുന്നുണ്ട്